സൌദി അറേബൃയിലേക്ക് തിരിക്കും

ഭീകരസംഘടനയായ ഐ

ബാഗ്ദാദിയെ വധിക്കാനായത് ഭീക്രത്യ്ക്കെതിരെ നേടിയ വലിയ വിജയമെന്ന് ലോകനേതാക്കൾ

ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി

സൌദിയുമായി ബന്ധം ഊട്ടിഉറപ്പിക്കാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൌദി ഭരണാധികാരി സൽമാൻ രാജാവുമായും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും സൌദിഅറേബ്യയുടെ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടാണ് ഭാവി നിക്ഷേപ സംരംഭക സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് തന്ത്രപരമായ പങ്കാളിത്തത്തിനായി ഇന്ത്യ ചൈന യു കെ യു എസ് എ ഫ്രാൻസ് ജർമ്മനി ദക്ഷിണകൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളെയാണ് സൌദി അറേബ്യ തെരഞ്ഞെടുത്തിട്ടുള്ളത്

മുമ്പ് അസാധ്യമെന്ന് കരുതിയിരുന്ന പല തീരുമാനങ്ങളും എടുക്കാൻ കേന്ദ്രഗവൺമെന്റിന് സാധ്യമായത് സൈന്യത്തിലുള്ള പ്രിശ്ീസം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്മരണാർഹമായ സ്പേപ്പന്ടു നടത്തുന്ന സൈനികർക്ക് രാജ്യത്തെ ജനങ്ങളുടെ പേരിൽ നന്ദി അറ്റിയിക്കു്ന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ ദേശീയ യുദ്ധ്യസ്മാരകം സന്ദർശിക്കുന്നവരുടെ എണ്ണം ഏറി വരുന്നത് പൌരൻമാർക്ക് സായു്ധസേനയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചുവരുന്നതിന് തെളിവാണെന്ന് മടക്കയാത്രയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി

വെങ്കയ്യനായിഡു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽകണ്ട് ദീപാവലി ആശംസകൾ നേർന്നു ഇവരോടൊപ്പമുള്ള ചിത്രങ്ങൾ ടിറ്ററിലൂടെ പ്രധാനമന്ത്രി പങ്കുവച്ചു

അമേരിക്കയുടെ പ്രത്യേക സംഘമാണ് വടക്കു കിഴക്കൻ സിറിയയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബാഗ്ദാദിയെ കണ്ടെത്തിയത് സൈന്യം വളഞ്ഞതായി മനസ്സില്ലൂക്കിയപ്പോൾ ബാഗ്ദാദി ഒരു ടണലിലേക്ക് ഓടിക്കയറുകയും അവസാനം സ്ത്യം സ്ഫോടനം നടത്തുകയായിരുന്നു മൃതദേഹം ഡിഎൻ എ് പരിശോധന നടത്തിയാണ് മരണം സ്ഥിരീകരിച്ചത്

കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ പാർലമെന്റ് അംഗങ്ങളാണ് രാജിവച്ചത്

രണ്ട് ദിവസമായി തുടരുന്ന തീപിടിത്തം കൂടുതൽ മേഖലയിലേക്ക് പടർന്നതോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്

മൂവായിരത്തോളം അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് തീയണയ്ക്കാൻ രംഗത്തുള്ളത്

ഒരാഴ്ചയെങ്കിലും തീയണയ്ക്കാൻ സമയമെടുക്കും അതുവരെ വൈദ്യുതി ബന്ധം വഛേദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും

വട്ടിയൂർക്കാവിൽ വിജയിച്ച വി കെ പ്രശാന്ത് കോന്നിയിലെ കെ യു ജനീഷ്കുമാർ അരൂരിലെ ഷാനിമോൾ ഉസ്മാൻ എറണാകുളത്തെ ടി ജെ വിനോദ് മഞ്ചേശ്വരത്ത് ജയിച്ച എം

പാലായിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാണി സി കാപ്പൻ നേരത്തെ സ്പീക്കർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പെട്രോളിയം ഖനനത്തിന് ഉപയോഗിക്കുന്ന റിഗ് ഉപയോഗിച്ച് സമാന്തരമായി കിണർ നിർമ്മിച്ചാണ് രക്ഷാപ്രവർത്തനം

വെള്ളിയാഴ്ച വൈകിട്ടാണ് സുജിത് വിൽസൺ എന്ന രണ്ടുവയസ്സുകാരൻ കുഴൽകിണറിൽ വീണത്

മീൻപിടുത്തക്കാരോട് കടലിൽ പ്പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി പത്തനംതിട്ട കൊല്ലുക് തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വരുന്ന രണ്ട് ദിവസം കേരളത്തിൽ വ്യാപകമഴയ്ക്ക് സാധ്യതയുണ്ട്

ഇന്തോനേഷ്യയുടെ മാർകസ് ഫെർണാൽഡി ഗിഡെൻ കെവിൻ സഞ്ജയ സുകാൽ ജോ സഖ്യത്തോടായിരുന്നു തോൽവി

ഇക്കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റേയും കളിക്കാരുടെയും അനുവാദം വാങ്ങിയതായി ബംഗ്ലാദേശ് ക്രിക്കറ്റ്ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് നിസാമുദ്ദീൻ ചൌധരി പറഞ്ഞു ധാരണയനുസരിച്ച് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് പകൽ രാത്രി മൽസരമാണ്

ആദ്യ മൽസരം ഞായറാഴ്ച നടക്കും

ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ ശ്രാവൺ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായി മൽസര രംഗത്തുണ്ട്

അതേസമയം ഏറ്റവും പ്പലിയ ഒറ്റക്കക്ഷി ബിജെപിയാണെന്നും ബിജെപി നേതൃത്വം നൽകുന്ന സഖ്യത്തിന് സ്ഥിരതയുള്ള ഗവൺമെന്റ് ഉണ്ടാക്കാൻ ്കഴിയുമെന്നും കാവൽമുഖ്യമന്ത്രിയായ ദേവേന്ദ്രീ ഫട്ട്നാവിസ് പറഞ്ഞു ഉടൻ തന്നെ ബിജെപിയുടെ പുതിയ എം

അതേസമയം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ മോശം പ്രകടനത്തിന് കാരണം വിമതരുടെ സാന്നിദ്ധ്യമാണെന്ന് പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പ്രതികരിച്ചു

തൊഴിലും വരുമാനവും ഉറപ്പാക്കി ലഡാക്കിനെ മാതൃകാ കേന്ദ്രഭരണ പ്രദേശമാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി ഔദ്യോഗികമായി മാറും മേഖലയിലെ ഗിരിവർഗ വിഭാഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തി മികച്ച പദ്ധതികളാണ് ലഡാക്കിനായി കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്